സിബിഐ യും പശ്ചിമ്പ്പ്ംഗാൾ പൊലീസുമായുള്ള പോര് ഭരണഘടനാശ്ലുംഘനത്തിന്റെ സൂചനയാണെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്

ശാരദാ ചിട്ടി തട്ടിപ്പ് കേസിൽ കൊൽക്കത്ത പൊലീസിനെതിരെ സിബിഐ നൽകിയ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും

ദേശീയ സംസ്ഥാന പാതകളിലെ അപകടസാധൃതാ മേഖലകളിൽ ജി

എസ് അധിഷ്ഠിത വാഹന നിരീക്ഷണ സംവിധാനത്തിന് ഉടൻ തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ബഹളിത്ത് തുടർന്ന് നിർത്തി വച്ച രാജ്യസഭ ഉച്ചയ്ക്ക് രണ്ട മണ്ടിക്ക് വീണ്ടും ചേർന്നെങ്കിലും തൃണമൂൽ കോൺഗ്രസ് സമാജ്പ്പാദി പാർട്ടി തുടങ്ങിയ കക്ഷികൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു ഇതിനെ പ്രതിരോധി ക്കാൻ ചില ബിജെപി അംഗങ്ങളും മുതിർന്നു തുടർന്ന് ഉപരാഷ്ട്രപതി എം

രാവിലെയും ഈ വിഷയത്തെ ചൊല്ലി തൃണമൂലിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ബഹളമുണ്ടാ ക്കിയിരുന്നു രാഷ്ട്രീയ കാരണങ്ങളാൽ കേന്ദ്രഗവൺമെന്റ് സിബിഐ യെ ദുരുപയോഗപ്പെടുത്തുകയാണെന്ന് തൃണമൂൽ നേതാവ് ഡെറിക് ഒബ്രിയൻ ആരോപിച്ചു കോൺഗ്രസ് ആർ

ലോക്സഭയിലും തൃണമൂൽ ആർ

ഡി എസ് പി തുടങ്ങിയ കക്ഷികൾ പശ്ചിമ ബംഗാൾ വിഷയം ഉയർത്തി നടുത്തള ത്തിലിറങ്ങി റഫാൽ വിമാന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അംഗങ്ങളും ബഹളം വച്ചു

ഭരണസംവിധാനം ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം കേന്ദ്രഗവൺമെന്റിന് ഉണ്ടെന്നും ശ്രീ

സിബിഐ യെ കൃതൃനിർവ്വഹണത്തിൽ തടസ്സപ്പെടുത്തുന്ന കൊൽക്കത്ത പൊലീസിന്റെ നടപടി നിയമവിരൂദ്യമാണ് ശൂന്യവേളയിൽ ലോക്സഭയിൽ ഈ വിഷയവുമായിൽ ബ്ന്ധപ്പെട്ട അംഗങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയ്ക്ക്യായിരുന്നു ആഭ്യന്തരമന്ത്രി

ചിട്ടി ഫണ്ട് അഴിമതിയിൽ രാഷ്ട്രീയ്ക്കാരും സ്വാധീന ശക്തികളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് ക്ട്ട്ടായിട്ടുണ്ടെന്നും സുപ്രീംകോടതിയുടെ നിർദേദശപ്രകാരമാണ് കേസ് സിബിഐ അന്വേഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

അന്വേഷണം തടസ്സപ്പെടുത്താനും തെളിവ് നശിപ്പിക്കാനും പൊലീസ് ശ്രമിച്ചുവെന്നാണ് സിബിഐ യുടെ വാദം പൊലീസ് കമ്മീഷണർ രാജീവ് കുമാറിനോട് സിബിഐ മുമ്പാകെ ഹാജരാകാൻ നിർദ്ദേശിക്കണമെന്നും അന്വേഷണവുമായി സഹകരിക്കാൻ പശ്ചിമബംഗാൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടണമെന്നുമാണ് സിബിഐ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് അസാധാരണ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളതെന്നും അടിയന്തരമായി പരിഗണിക്കണമെന്നും സിബിഐ യ്ക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞെങ്കിലും കോടതി കേസ് നാളത്തേക്ക് മാറ്റുകയായിരുന്നു

ഇടക്കാല ഡയറക്ടറായി ് എം നാഗേശ്വര റാവുവിൽ നിന്നാണ് ഋഷികുമാർ ശുക്സ പുതിയ് ഡയറക്ടറായി സ്ഥാനമേറ്റെടുത്തത്

പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലേക്കുള്ള ഉന്നതാധികാര സമിതി കഴിഞ്ഞ ശനിയാഴ്ച ശ്രീ ഋഷികുമാർ ശുക്സയുടെ നിയമനത്തിന് അംഗീകാരം നല്കിയിരുന്നു

ലോക അർബുദ ദിനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹം ഇതു പറഞ്ഞത് കൂടുതൽ വിവരങ്ങളുമായി സുവർണ ഇതിനായി ഡോക്ടർമാരും വിദഗ്ധരും നയരൂപീകരണം നടത്തുന്നവരും മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു ആരോഗ്യകരമായ ജീവിതശൈലിയും ഭക്ഷണരീതിയും പാലിക്കുന്നത് അർബുദത്തെ അകറ്റാൻ സഹായിക്കും

ലോക അർബുദ ദിനം സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര അർബുദ നിയന്ത്രണ സംഘടന മൂന്ന് വർഷത്തെ പ്രവർത്തനങ്ങൾക്കാണ് ഇത്തവണ തുടക്കമിടുന്നത് വ്യക്തി അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ ഭാവിയെ സ്വാധീനിക്കുക എന്നതാണ് പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് മലമ്പനി ക്ഷയം എന്നിവ മൂലം മരണമടയുന്നവ്ട്രേക്കാൾ കൂടുതലാണ് ഓരോ വർഷവും അർബുദം മൂല്ലൂ മർിക്കുന്നവരുടെ എണ്ണം

ഓരോ വർഷവും പുതുത്യാിയി ഒരു ലക്ഷം പേരെ അർബുദം ബാധിക്കുന്നു കഴിഞ്ഞു വ്ർഷ്മ ഏഴ് ലക്ഷത്തോളം പേരാണ് അർബുദം മൂലം മൂർണത്തിന് കീഴടങ്ങിയത്

അധിഷ്ഠിത വാഹന നിരീക്ഷണ സംവിധാന ത്തിന് ഉടൻ തുടക്കം കുറിയ്ക്കുമെന്ന് മുഖൃമന്ത്രി പിണറായി വിജ യൻ ദേശീയ റോഡ് സുരക്ഷാവാരത്തിന്റെ സംസ്ഥാനതല ഉദ് ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

ഇതോടൊപ്പം സ് റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകളെ ഉപ്പ്യോഗിച്ച് ബോധവത്കര ണവും നടത്തും

സാകേത് മൈനേനി ശശികുമാർ മുകുന്ദ് എന്നിവരാണ് മത്സരിക്കുന്ന മറ്റ് ഇന്ത്യൻ താരങ്ങൾ

കേസ് നാളെ പരിഗണിക്കുമെന്ന് ജസ്റ്റിസ് ശിവകാന്ത് പ്രസാദ് പറഞ്ഞു

ശാരദാ ചിട്ടി തട്ടിപ്പ് കേസിലെ അഴിമതിക്കാരെ സംരക്ഷിക്കാനാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ശ്രമിക്കുന്നതെന്നും ബിജെപി കേന്ദ്രങ്ങൾ പറഞ്ഞു

പശ്ചിമ ബംഗാൾ ഗവൺമെന്റും സിബിഐ യും തമ്മിലുള്ള പ്രശ്നം ആണ് ചർച്ചയ്ക്ക് ആധാരമായത്

എന്തിനാണ് ശാരദ ചിട്ടി തട്ടിപ്പ് കേസിലെ അന്വേഷണത്തിൽ നിന്ന് ശ്രീമതി മമതാ ബാനർജി ഒളിച്ചോടുന്നതെന്ന് കേന്ദ്രമന്ത്രി ചോദിച്ചു

കേസ് ഡൽഹി അഡീഷണൽ ഷ്ട്രീഫ് മെട്രോപൊളിറ്റൻ മെജിസ്ട്രേറ്റ് സമർ വിശാൽ അഡ്രീഷണൽ സെഷൻസ് ജഡ്ജ് അരുൺ ഭരത്ദാജിനാണ് കൈമാ്റിയത്

സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ വിവിധ പദ്ധതികളിലൂടെ സ്ത്രീകളെ ശാക്തീകരിക്കുകയാണ്